നരേന്ദ്രമോദി പങ്കെടുത്തു

ചിദംബരത്തെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി

മരട് ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ നിർമ്മാണ കമ്പനി ഉടമ ഉൾപ്പെടെ മൂന്നു പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു

രാജ്യതാത്പര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് നിരവധി നടപടികൾ കൈക്കൊണ്ടതായി അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ ് സാമ്പത്തികമായി ശാക്തീകരിക്കാൻ ബി ജെ

ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളെ പ്രധാനമന്ത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടി സ്വന്തം മികവുകളിലൂടെ കൂടുംബത്തെയും സമൂഹ ത്തെയും രാജ്യ ത്തെയും അഭിമാനപൂരിതമാക്കുന്ന പെൺമക്കൾക്കായി ഈ വർഷത്തെ ദീപാവലി സമർപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കായിക കേഖലയിലെ ഗവൺമെന്റ് പദ്ധതികൾ ഹരിയാനയിലെ കായിക താരങ്ങൾക്ക് ഗുണകരമായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഹരിയാനയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ബേട്ടി ബച്ചാവേ ബേട്ടി പഠാവോ പദ്ധതി വിജയകരമാകില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യം സുരക്ഷ വനിതാ ശാക്തീകരണം എന്നിവ്യ്ക്കാണ് ഈ ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ആറിയിച്ചു

ജെ അബ്ദുൾ കലാമിന്റെ സംഭാവനകൾ തദ്ദേശീയമായി മികവ് തെളിയിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയ്ക്കും ഇടം നേടി കൊടുത്തതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂഡൽഹിയിൽ പ്രതിരോധ ഗവേഷണ വികസന സമിതി ഡയറക്ടർമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി

കൃത്യമായ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഡി

ഒ

അനുയോജ്യമായ സാങ്കേതിക വിദ്യ രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതായി ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ പറഞ്ഞു

എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി

ഇതുമായി ബന്ധപ്പെട്ട സ്സി ബി ഐ

തിഹാർ ജയിലിൽ കഴിയുന്ന പി ചിദംബരത്ത്ത് നാളെ ജയിലിൽ വച്ച് ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കോടതി അനുമതി നൽകിയത് അതേസമയം സി ബി ഐ കേസിൽ പി

തന്നെ അപ്മാനിക്കാനാണ് കസ്റ്റഡി നീട്ടണമെന്ന ആവശ്യത്തിലൂടെ സി ബി ഐ

ബി ഐ യ്ക്കു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നാളെ സുപ്രീം കോടതിയിൽ ഹാജരാകും

ഭീകരവാദ പ്രവർത്തനങ്ങൾ നരേന്ദ്ര മോദി ഗവൺമെന്റ് വെച്ചുപൊറുപ്പിക്കില്ലെന്നും അമിത് ഷാ അറിയിച്ചു

മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കപിൽ സിബൽ ആനന്ദ് ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് ന്യൂഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് വിഷയം അവതരിപ്പിച്ചത്

മൻ കി ബാതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ആൾയങ്ങളും ്അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാമെന്ന് പ്രധാനമന്ത്രി ട്ടിറ്ററിൽ അറിയിച്ചു

ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചു ഇത് സംബന്ധിച്ച പട്ടിക ബി എസ്

എല്ലിന് കൈമാറിയതായും പ്രാരംഭ പ്രവർത്തനങ്ങൾ നാളെ തുടങ്ങുമെന്നും ശ്രീ

പൂഞ്ച് ജില്ലയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ഇന്ന് രാവിലെ പാകിസ്ഥാൻ പ്രകോപനം കൂടാതെ വെടിയുതിർക്കുകയായിരുന്നു

മരിച്ചയാളുടെ കുടുംബത്തിന് പതിനായിരം രൂപയുടെ അടിയന്തീര സഹായവും ഒരു ലക്ഷം രൂപയുടെ ചെക്കും നൽകിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു

ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

വി ഐ

ചോപ്പർ അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഗൌതം ഖെയ്ത്താനെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് ആദായ് നികുതി വകുപ്പിനെ വിലക്കി കൊണ്ടുള്ള ഡൽഹി ഹ്ലൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസ് അരുൺ മീശ്രയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സുപ്രീം കോടതി ബഞ്ച് ക്കേസ് വീണ്ടും പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു

ജെ

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ബി ജെ

വർക്കിങ് പ്രസിഡന്റ് ജെ

നദ്ദ സംസ്ഥാന യൂണിറ്റ് ചീഫ് ചന്ദ്രകാന്ത് പട്ടീൽ മറ്റ് നേതാക്കൾ എന്നിവർ ചേർന്നാണ് പ്രകടന ്പത്രിക പുറത്തിറക്കിയത് സംസ്ഥാനത്ത് ഒരു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പത്രികയിൽ പറയുന്നു

ജുഡീഷ്യൽ കസ്റ്റഡി അവസാനിച്ചുതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു

ഫ്ളാറ്റ് നിർമ്മാണ കമ്പനി ഉടമ സാനി ഫ്രാൻസിസ് മരട് പഞ്ചായത്ത് മുൻ സെക്രട്ടറി മുഹമ്മദ് അഷറഫ് മുൻ ജൂനിയർ സൂപ്രണ്ട് പി

ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്

ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങളനുസരിച്ചുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് ക്രൈംബ്രാഞ്ച് എ

ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു

സമാപന സമ്മേളനവും ലോക ഭക്ഷ്യ ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടികളും നാളെ തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ

ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു